സുരക്ഷാ സ്ഥിതി വിലയിരുത്താനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ജമ്മു കശ്മീരിലെത്തും

തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരൂക്കങ്ങൾ ഇലക്ഷൻ കമ്മിഷൻ ഇന്ന് വിലയിരുത്തും

നിയമവാഴ്ചയുള്ള രാജ്യത്ത് സുപ്രീം കോടതി വിധി അട്ടിറിക്കാൻ ശ്രമം നടക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ

ഏഷ്യൻ ഹോക്കി ചാമ്പ്യൻസ് ട്രോഫി പുരുഷ വിഭാഗത്തിൽ നാലാം റൌണ്ടിൽ ഇന്ത്യ ഇന്ന് മലേഷ്യയെ നേരിടും

സംസ്ഥാനത്തെ സൂരക്ഷ സാഹചരൃങ്ങൾ അദ്ദേഹം വിലയിരുത്തും നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി ഗവർണർ സത്യപാൽ മാലിക് മുതിർന്ന പോലീസ് സുരക്ഷ ഉദ്യോഗസ്ഥർ എന്നിവരുമായി നടത്തുന്ന ഉന്നതതല ചർച്ചയിലും അദ്ദേഹം പങ്കെടുക്കും

കഴിഞ്ഞ ആഴ്ച നാലാംഘട്ട മുനിസിപ്പൽ വോട്ടെടുപ്പ് പൂർത്തിയായി

ഇന്നലെ വൈകിട്ട് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഒ

റാവത്തിന്റെ നേതൃത്വത്തിൽ കമ്മീഷൻ ഹൈദരാബാദിലെത്തി ഇന്ന് ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുമായും എസ് പി മാരുമായും ആശയവിനിമയം നടത്തും

ജെ പി കോൺഗ്രസ് ബി

ഡി പി ടി

നാളെ കൂടിക്കാഴ്ച അവസാനിക്കും മുമ്പ് ആദായനികുതി എക്സൈസ് ഗതാഗത വിഭാഗങ്ങളുമായും സംഘം ചർച്ചകൾ നടത്തും

കൃത്രിമ ബുദ്ധി എല്ലാവർക്കും കൃത്രിമ ബുദ്ധിയുടെ പ്രയോഗത്തിലൂടെ സമ്പൂർണ വികസനം എന്നതായിരുന്നു പരമ്പരയുടെ ഈ വർഷത്തെ പ്രമേയം

സോഫ്റ്റ്വെയറുകൾ കച്ചവടവത്കരിക്കുന്നതിലൂടെ മത്സരബുദ്ധി എങ്ങനെ നവീന ആശയങ്ങളെ ജനകീയമാക്കുന്നു എസ്പ്പിചിഷയത്തിൽ ഹുയാങ് സംസാരിച്ചതായി നിതി ആയോഗ്പ് ട്വിറ്റ്സിൽ കുറിച്ചു പങ്കാളിത്ത വളർച്ചയ്ക്ക് കൃത്രിമ ബുദ്ധിയുട്ടിട്ടു സ്പാധീനം എന്ന വിഷയത്തിൽ പാനൽ ചർച്ചയും നടന്നുക്കു നിതി ആയോഗ് ഉപാധ്യക്ഷൻ കേന്ദ്രമന്ത്രിമാർ മുതിർ ്ന്നു ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു

ടി

കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണ

ടി ഇ

വ്യാവസായികാടിസ്ഥാനത്തിൽ ആണവ സംയോജനം വഴി ഊർജ്ജോൽപാദനം സാദ്ധ്യമാണെന്ന് വൃക്തമാക്കുന്നതിനുള്ളതാണ് പദ്ധതി ചൈന യു എസ് എ റഷ്യ ജപ്പാൻ ദക്ഷിണ കൊറിയ യൂറോപ്യൻ യൂണിയൻ എന്നിവയാണ് ഐ ടി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

സാങ്കേതിക സാമ്പത്തിക വികസന മേഖലകളിൽ നിലവിലുള്ള സാധ്യതകൾ എടുത്തുകാട്ടാൻ ലക്ഷ്യമിട്ടാണ് സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്

മുഖ്യമന്ത്രിയുടെ ടെലിവിഷൻ സംവാദ പരിപാടിയായ നാം മൂന്നോട്ടിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശബരിമലയെ സംഘർഷ ഭൂമിയാക്കാനുള്ള ചിലരുടെ ശ്രമം കൊണ്ട് കേരളത്തിന്റെ മതനിരപേക്ഷതയെ ഉലയ്ക്കാനാകില്ല ശബരിമല യുവതിപ്രവേശനം സംബന്ധിച്ച് സുപ്പീട് കോടതി വിധി അതേപടി നടപ്പാക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നതെന്നും മുഖ്യമന്ത്രി വൃക്തമാക്കി

ബജ്രംഗിന് തിരിച്ചടിക്കാനായില്ല സ്വർണം നേടിയാൽ സുശീൽ കുമാറിനുശേഷം ഈ നേട്ടം കുറിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാകുമായിരുന്നു ബജ്രംഗ്

കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണ

ഇന്ത്യൻ താരങ്ങളായ കിടംബി ശ്രീക്കാത്ത് പി

സിന്ധു സൈന നെഹ്വാൾ എന്നിവർ ഈ വർഷ്ട്രത്ത് തങ്ങളുടെ ആദ്യ കിരീടത്തിനായി കളത്തിലിറങ്ങും

പുരുഷ സിംഗിൾസിൽ ബി സായ് പ്രണീത് സമീർ വെർമ്മ എന്നിവരും മത്സരിക്കും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ചീഫ് ജസ്സിസ് രഞ്ജൻ ഗൊഗോയി ജസ്റ്റിസ് എസ്

കൌൾ എന്നിവരടങ്ങിയ ബഞ്ചാണ് ഹർജികൾ പരിശോധിക്കുക നിയമജ്ഞൻ മാത്യു

നെടുംപാറയാണ് ഹർജികൾ ഉടൻ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരിക്കുന്നത് നേരത്തെ അഞ്ചംഗ ഭരണഘടനാ ബഞ്ചിൽ നാലു പേരും സ്ത്രീ പ്രവേശനത്തെ അനുകൂലിച്ച് വിധി പ്രസ്താവിച്ചിരുന്നു

സാധാരണ നടപടിക്രമം അനുസരിച്ചേ ഹർജി കേൾക്കൂവെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗോഗോയി ജസ്റ്റിസുമാരായ എസ്

കൌൾ കെ

ജോസഫ് എന്നിവരുടെ ബെഞ്ച് വൃക്തമാക്കി

മുംബൈയിൽ ഇന്നലെ തുറമുഖം സാമ്പത്തിക വികസനത്തിന്റെ യന്ത്രവും ചക്രവും എന്ന വിഷയത്തിൽ നടന്ന പാനൽ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം